പൌരത്വ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഭേദഗതി നിർദ്ദേശവുമായി പ്രതിപക്ഷം

കേരള പുനർനിർമാണ പദ്ധതി നിർദ്ദേശങ്ങൾക്കും അംഗീകാരം

എസ് ആർ

എസ് എൽ

ദേശീയ സീനിയർ സ്കൂൾ കായികമേളയ്ക്ക് പഞ്ചാബിൽ തുടക്കം

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്

ആവശ്യം

പാർലമെന്റ് ഹാളിലാണ് യോഗം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര മന്ത്രി അമിത് ഷാ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

സംസ്ഥാനത്തെ പാലിയേറ്റീവ് പരിചരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന രീതിയിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തും മെഡിക്കൽ കോളേജുകളെ പാലിയേറ്റീവ് പരിചരണ രംഗത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്നതും ലക്ഷ്യമാണ് കേരള പുനർനിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതി നിർദേശങ്ങൾ മന്ത്രിസഭു അംഗീകരിച്ചു

കൃഷ്ടി ്മത്സ്യബന്ധനം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ പൃദ്ധതികൾക്കും മാപ്പത്തോൺ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി

എസ് എൽ

എസ് എൽ വി വിക്ഷേപണ വാഹനത്തിന്റെ അൻപതാമത് വിക്ഷേപണമാണ് ഇന്ന് നടക്കുന്നത്

വി യുടെ സവിശേഷതകളെക്കുറിച്ച് വിക്ഷേപണ തറയായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വി

എസ് സി ഡയറക്ടർ എസ് സോമനാഥ് ആകാശവാണിയോട്

പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പാലക്കാട് സപ്ലൈകോ പീപ്പിൾസ് ബസാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൻകിട കച്ചവടക്കാരോട് കിടപിടിക്കുന്ന രീതിയിലാണ് പീപ്പിൾ ബസാറുകൾ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി അറിയിച്ചു

ചന്ദ്രശേഖരൻ ഭൂപ്രശ്നം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് നിയമപരിധിക്കുള്ളിൽ നിന്നു കൊണ്ടു തന്നെ അതിവേഗ പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ഇ

കട്ടപ്പന മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പലതും സങ്കീർണ്ണത നിറഞ്ഞതും കോടതിയുമായി ബന്ധപ്പെട്ടതുമാണ് അതു കൊണ്ടു തന്നെ കോടതി വിധിയെ മാനിക്കാതെ തുടർ നടപടികൾ സ്വീകരിക്കാനാകില്ല

ഡിസൈൻ രംഗത്തെ അന്താരാഷ്ട്ര പ്രചോദന കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളിലെ സുപ്രധാനമായ കാൽവെപ്പാണ് കൊച്ചി ഡിസൈൻ വീക്ക്

കേസനേഷണത്തിനിടെ അന്വേഷണസംഘം കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് വേണമെന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടത്

മൂലമറ്റം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂലമറ്റം വൈദ്യുതിനിലയത്തിന്റെ പ്രവർത്തനം ഇന്നലെ മുതൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് നമ്പർ ജനറേറ്ററുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ കിക്ടർ സിസ്റ്റം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് നിലയം ഒരാഴ്ച പൂർണമായും നിർത്തുന്നത്

പ്രതി പോലീസ് ക്സ്റ്റ്ഡിയിൽ പുനക്കുന്നൂർ സ്വദേശിനി ഷൈലയാണ് കൊല്ലപ്പെട്ടത്

ഭവന പദ്ധതിയിലുൾപ്പെട്ട് ഗുണഭോക്താക്കൾ നേരിടുന്ന ആവശ്യങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്